ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങി പത്തനംതിട്ടയിൽ ബിജെപി സ്ഥാനാർത്ഥിയാകു മെന്ന വാർത്ത അസംബന്ധമെന്ന് കോൺഗ്രസ് നേതാവ് പ്രൊഫ

കുര്യൻ

എൽ

മത്സരി ക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമായിരു ന്നുവെന്നും മണ്ഡലത്തിൽ മത്സരിക്കാൻ കോൺഗ്രസ് തന്നോട് ആവശ്യ പ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം തിരുവല്ലയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ ആവശ്യം നിരസിച്ച താൻ ബിജെപി സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നത് അധിക്ഷേപിക്കാനാണെന്നും കുര്യൻ കുറ്റപ്പെടുത്തി ബിജെപി ഇതുവരെ സ്ഥാനാർത്ഥിയാകണമെന്നാവശ്യപ്പെട്ട് സമീപിച്ചിട്ടില്ലെന്നും അത്തരം ഓഫറുകളൊന്നും സ്വീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു

താൻ എന്നും കോൺഗ്രസുകാരനായിരിക്കും ഇത്തരം കള്ളവാർത്തകൾ പടച്ചുവിടുന്നവരെ കണ്ടെത്തണം അഭ്യൂഹം പരത്തു ന്നത് മാധ്യമ ധർമ്മമല്ലെന്നും അധപതനമാണെന്നും കുര്യൻ പറഞ്ഞു മണ്ഡലത്തിൽ യു ഡിഎഫിനുവേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന തന്നോട് ചോദിക്കാതെയാണ് മാധ്യമങ്ങൾ ബിജെപ്പിയിലേക്ക് പോകുക യാണെന്ന വാർത്ത പടച്ചുവിട്ടത് പി

കുര്യൻ കുറ്റപ്പെടുത്തി പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തർക്കമില്ലെന്ന് ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ അറിയിച്ചു പാർട്ടി തീരുമാനം എന്തായാലും അംഗീകരിച്ച് മുന്നോട്ട്പോകുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാ പനം വൈകുന്നതിൽ അസ്വാഭാവികതയില്ലെന്നും അദ്ദേഹം തിരുവനന്ത പുരത്ത് പറഞ്ഞു പത്തനംതിട്ടയിൽ ബിജെപി സ്ഥാനാർത്ഥിയാകില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ വൃക്ത മാക്കി ഈ ആവശ്യവുമായി തന്നെ ആരും സമീപിച്ചിട്ടില്ല പാർട്ടി മാറുന്ന വിഷയം ഉദിക്കുന്നില്ലെന്നും താനിപ്പോഴും കോൺഗ്രസു കാരനാണെന്നും അദ്ദേഹം കൊല്ലത്ത് സ്ഥകാര്യ ചാനലിനോട് പറഞ്ഞു തൃശ്ശൂരിൽ ബിഡിജെഎസ് തന്നെ മത്സരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചു പാർട്ടി സംസ്ഥാന കമ്മറ്റി ചേർന്ന് രണ്ടു ദിവസത്തിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം ഒരു വാർത്താചാനലിനോട് പറഞ്ഞു താൻ മത്സരിക്കുന്ന കാര്യ ത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി അറി യിച്ചു മത്സരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂർ സീറ്റ് ബിജെപി ഏറ്റെടുക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും ബിഡി ജെഎസ് അധ്യക്ഷൻ പറഞ്ഞു തൃശ്ശൂരും പത്തനംതിട്ടയുമായി പാക്കേജ് ഇല്ലെന്നും തുഷാർ അറിയിച്ചു

പേരാവൂർ ഇരിക്കൂർ എന്നിവിടങ്ങളിൽ നട ക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും

ഡിഎഫ് വയനാട് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ വൈകീട്ട് മുക്കത്ത് നടക്കും മുസ്സീംലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും

പിയുടേത് വലതുപക്ഷ വൃതിയാനമല്ല മറിച്ച് തെരഞ്ഞെ ടുപ്പ് സഖ്യമാണെന്ന് ആർ

നേതാവ് കെ

ബംഗാളിൽ സി

കോൺഗ്രസുമായി സഖ്യത്തിന് ശ്രമി ക്കുന്നത് പോലെയാണിത് മുരളീധരൻ വന്നതോട്ടെ ഭൂരിപ്ക്ഷം എത്ര വർദ്ധിക്കുമെന്ന് മാത്രമേ അറിയാനുള്ളൂവെന്നും ആർ

യിൽനിന്ന് പ്രവർത്തകർ സി

എമ്മിലേക്ക് കൊഴിഞ്ഞുപോകുന്നുവെന്ന പ്രചാ രണം അടിസ്ഥാന രഹിതമാണെന്നും രമ അറിയിച്ചു

കേന്ദ്രമന്ത്രി രവിശ്ങ്കർ പ്രസാദ് പാറ്റ്ന സാഹിബ് മണ്ഡലത്തിൽ മത്സരിക്കും നിലവിൽ ശത്രുഘ്നൻ സിൻഹയാണ് ഈ സീറ്റിലെ ലോക്സഭാംഗം

കഴിഞ്ഞ തവണ സുഷമ മത്സരിച്ച മധ്യപ്രദേശിലെ വിദിഷയിൽ അനു യോജ്യ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചുവരിക്യാണെന്ന് പാർട്ടികേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ അറിയി ച്ചു രാഷ്ട്രീയത്തിൽനിന്ന് വിരമിക്കുന്നില്ലെന്നും ആരോഗ്യ കാരണങ്ങ ളാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും കഴിഞ്ഞ വർഷം സുഷമാ സ്വരാജ് പ്രഖ്യാപിച്ചിരുന്നു

വി പാറ്റ് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടിംഗ് സ്ലിപ്പുകൾ എണ്ണുന്ന തുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകി കൂടുതൽ വോട്ടിംഗ് യന്ത്രങ്ങളിലെ സ്തിപ്പു കൾ എണ്ണണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം മുൻനിർത്തി റിപ്പോർട്ട് തയ്യാറാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്ഥാപ ന നത്തോട് ആവശ്യപ്പെട്ടിരുന്നു അഞ്ച് ശതമാനം യന്ത്രങ്ങളിലെ വോട്ട് എണ്ണിയാൽ മതിയെന്ന ശുപാർശയാണ് അവർ നൽകിയതെന്ന് സൂചന യുണ്ട്

ഓച്ചിറയിൽനിന്ന് പെൺകുട്ടിയെ തട്ടികൊ ണ്ടുപോയ സംഭവത്തിൽ പൊലീസ് നടപടി കാര്യക്ഷമമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി കിട്ടണ മെന്നും കേസിൽ പൊലീസ് ഒത്തുതീർപ്പിനൂ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

അതിനിടെ പെൺകുട്ടിയും മുഖ്യപ്രതിയും മഹാരാഷ്ട്രയിലുണ്ടെന്ന സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പൊലീസ് അനേഷണം അവി ടേയ്ക്ക് വ്യാപിപ്പിച്ചു ജസ്റ്റിസ് പിന്നാക്കി ചന്ദ്രഘോഷ് ലോക്പാൽ ചെയർമാനായി ചുമത ലയേറ്റു രാഷ്ട്രപതിഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു

നടപ്പ് സാമ്പത്തിക വർഷത്തെ ഓഹരി വിറ്റഴിക്കൽ ലക്ഷ്യത്തേക്കാൾ അയ്യായിരം കോടി രൂപ കേന്ദ്രം കൂടുതലായി സമാഹരിച്ചെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു

കോതമംഗലത്ത് മാർത്തോമ പള്ളിയിൽ വിശ്വാസികൾ തമ്മിലെ തർക്കത്തെ തുടർന്ന് ഓർത്തഡോക്സ് വിഭാഗം വൈദികൻ തോമസ് പോൾ റമ്പാനെ പള്ളിയിൽ പ്രവേശിക്കുന്നതിൽനിന്ന് തടഞ്ഞു പൊലീസ് ഇടപെട്ടതിനെതുടർന്ന് റമ്പാൻ തിരികെപോയി അതേസമയം പള്ളിക്കു ള്ളിൽ യാക്കോബായ വിഭാഗം പ്രാർത്ഥനാ യജ്ഞം തുടരുകയാണ് സ്ഥലത്ത് പൊലീസ് സുരക്ഷ ശക്തമാക്കി

ചെന്നൈ ചിദംബര സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മത്സരത്തിൽ നിലവിൽ ചാമ്പ്യൻമാരായ ചെന്നൈ സൂപ്പർകിംഗ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും രാത്രി എട്ടിനാണ് മത്സരം

കഴിഞ്ഞ സീസൺ വരെ ഡൽഹി ഡയർ ഡെവിൾസ് എന്നറിയ പ്പെട്ടിരുന്ന ടീം ഇത്തവണ ഡൽഹി ക്യാപിറ്റൽസ് എന്ന പേരിലാണ് കളി ക്കിറങ്ങുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങ് ഇത്തവണ ഉണ്ടാവില്ല ജവാന്മാരുടെ ക്ഷേമത്തിനായി ബിസി സി

നാളെ ലോക ക്ഷയരോഗ ദിനം

ക്ഷയരോഗ ത്തിന് ഹേതുവായ ബാക്ടീരിയകളെ കണ്ടെത്തിയതിന്റെ ഓർമ്മക്കാണ് രാജ്യാന്തരതലത്തിൽ ക്ഷയരോഗ ദ്വിനം ആചരിക്കുന്നത് നല്ല ശീലങ്ങൾ തുടങ്ങൂ വായുജന്യരോഗങ്ങൾ തടയൂ എന്നതാണ് ഇത്തവണത്തെ ദിനാ ചരണ സന്ദേശം ദിനാചരണത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ വഖഫ് ബോർഡ് ട്രൈബ്യൂണൽ ചെയർമാൻ കെ സോമൻ നിർവ്വഹിക്കും ലോക ക്ഷയ്രോഗ ദിനാചരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം നാളെ വൈകീട്ട് ടൌൺ സ്ക്വയറിൽ ജില്ലാ കലക്ടർ മീർ മുഹമ്മദലി നിർവ്വ ഹിക്കും ബോധവൽക്കരണ റാലി ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കു ന്നുണ്ട്

ബി ഓഫീസർ ഡോ

അശ്വിൻ അറിയിച്ചു വെസ്റ്റ്നൈൽ വൈറസ് പക്ഷികളിലും മൃഗങ്ങളിലും പടർന്നിട്ടുണ്ടോ യെന്നതിന്റെ ആദ്യ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും വേങ്ങര യിൽനിന്ന് ആരോഗ്യവകുപ്പ് പിടികൂടിയ കൊതുകുകളുടെ രക്ത പരിശോ ധനാഫലവും ഇന്നുണ്ടാകുമെന്നാണ് സൂചന

ട സൌദിയിൽ മരിച്ച പത്തനംതിട്ട കോന്നി സ്വദേശി റഫീഖിന്റെ മൃത ദേഹം ഇന്ന് കൊച്ചിയിൽ എത്തിക്കും

ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് നിരോധനാജ്ഞ ലംഘിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ യു ഡി എഫ്

നിലയ്ക്കലിൽ നിരോധനാജ്ഞ ലംഘിച്ച കേസിൽ ജാമ്യം എടുക്കാൻ ഉമ്മൻചാണ്ടി എം

മാരായ എൻ

പ്രേമചന്ദ്രൻ ആന്റോ ആന്റണി എന്നിവരാണ് ഹാജരായത് കണ്ണൂരിൽ അഖിലേന്ത്യാ കരകൌശല കൈത്തറി വിപണന മേള തുട ങ്ങി